കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ കൈക്കൊ തീരുമാനങ്ങൾ രാജ്യത്തെ സത്വര വികസനത്തിന്റെ ട് പാതയിലെത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

നെതർലാൻസിൽ റോട്ടർഡാം ടെന്നീസ് ഓപ്പണിന്റെ ക്വാർട്ടർ ഫൈനൽ പുരുഷ ഡബിൾസിൽ റോഹൺ ബൊപ്പണ്ണ ഡെന്നീസ് ഷപ്പൊവലോവ് സഖ്യം ഇന്ന് കളിക്കളത്തിൽ

മയക്ക് മരുന്ന് കടത്തിനെതിരായുള്ള ബിംസ്റ്റെക് പങ്കാളിത്ത രാഷ്ട്രങ്ങളുടെ ദ്വിദിന സമ്മേളനത്തെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇൌ വെല്ലുവിളി നേരിടാൻ വിവിധ സംഘടനകളുടെ സഹകരണത്തോടെ സർക്കാർ രൂപരേഖ തയ്യാറാക്കുമെന്ന് ശ്രീ

ലഹരിമരുന്നുകളോട് ഇന്ത്യയ്ക്ക് സഹിഷ്ണുതയില്ലെന്നും ലഹരി മരുന്നുകളുടെ കയറ്റുമതിയും ഇറക്കുമതിയും രാജ്യം അനുവദിക്കില്ലെന്നും ആഭ്യന്തര മന്ത്രി വ്യക്തമാക്കി

എ സർക്കാർ കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ കൈക്കൊ തീരുമാനങ്ങൾ രാജ്യത്തെ സത്വര വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നതിന്റെ ദൃഷ്ടാന്തമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ന്യൂഡൽഹിയിൽ സ്വകാര്യ ടിവി ക്ലാനൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ സംസാരിക്കുകയായിട്ടിരുന്നു അദ്ദേഹം സമയം പാഴാക്കാതെ രാജ്യം ആത്മവ്യീജ്ചാ്സത്തോടെ മുന്നോട്ട് കുതിക്കുകയാണെന്നും പ്രധാന്റ്മന്ത്രി പറഞ്ഞു

വിശദാംശങ്ങളുമായി ലിഖിത വിജയൻ

ഇന്ത്യൻ നാവികസേനയുടെ പ്രമുഖ പരിശീലന സ്ഥാപനമായ ഐ എൻ എസ് ശിവാജിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് ലോനാവാലയിൽ പ്രസിഡന്റ്സ് കളർ സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി ഒരു മിലിട്ടിറി യൂണിറ്റിന് നൽകുന്ന പരമോന്നത ബഹുമതിയാണ് പ്രസിഡന്റ്സ് കളർ

ഈ നിയമം രാജ്യത്ത് ജൈവ കീടനാശിനികളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു തുറമുഖങ്ങളുടെ സമഗ്രമായ കാര്യക്ഷമത മെച്ചപ്പെടുത്താനുള്ള തുറമുഖ അതോറിറ്റി ബില്ലിനും മന്ത്രിസഭ അംഗീകാരം നൽകി

ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ ഗിരീഷ് ചന്ദ്ര മുർമുവുമായി പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തും

പൊതുജനങ്ങളുമായും കായികതാരങ്ങളുമായും മാധ്യമപ്രവർത്തകരുമായും സ്ഘം കൂടിക്കാഴ്ച നടത്തി ജർമനി കാനഡ ഫ്രാൻസ് യുക്റ്റ്ലി അഫ്ഗാനിസ്ഥാൻ പോളണ്ട് തുടങ്ങിയ രാജ്യങ്ങളിൽ ്ന്നീന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടുന്നതാണ് സംഘം

തീവ്രവാദത്തിനെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ നടപടി അവസാനിപ്പിക്കണം എന്ന് വളരെ നാളായി ലോകരാഷ്ട്രങ്ങൾ ആവശ്യപ്പെട്ട് വരികയായിരുന്നു മുംബൈ പഥാൻകോട്ട് ആക്രമണങ്ങളിൽ ഉൾപ്പെടെ പാകിസ്താനിൽ നിന്ന് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന മറ്റ് സംഘടനകൾക്കും വൃക്തികൾക്കുമെതിരെയും പാകിസ്ഥാൻ നടപടി എടുക്കുമോ എന്നതും കാത്തിരുന്നു കാണാം എന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു

എച്ച്

മേധാവി ടെഡ്രോസ് ഗെബ്രിയേസസ് മുന്നറിയിപ്പ് നൽകി

കഴിഞ്ഞ നാല് പൊതു തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിലെ കുറ്റകൃത്യ പ്രവണത വർദ്ധിച്ചുവരുന്നതായി ജസ്റ്റ്രീസ് എഫ് നരിമാന്റെ നേതൃത്വത്തിലുള്ള ബഞ്ച് നിരീക്ഷിച്ചു ഒരു മാനനഷ്ടകേസിൽ വിധി പ്രസ്താവിക്കുന്നതിനിടെയ്ണ് രാഷ്ട്രീയത്തിലെ കുറ്റകൃതൃ പ്രവണത സംബന്ധിച്ച് ക്ടോടിയി പ്രാമർശം ഉണ്ടായത്

ഫെയ്സ് ബുക്ക് ടിറ്റർ തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിലും ഒരു പ്രാദേശിക പത്രത്തിലും ഒരുദേശീയ പത്രത്തിലും ഇത് സംബന്ധിച്ച വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തണമെന്നും സുപ്രീംകോടതി ആവശ്യപ്പെട്ടു

ജസ്റ്റിസുമാരായ ആർ ഭാനുമതി അശോക് ഭൂഷൺ എ എസ് ബൊപ്പെണ്ണ എന്നിവർ അടങ്ങിയ ബഞ്ച് പ്രതികൾക്ക് മറുപടി സമർപ്പിക്കാൻ നാളെ വരെ സമയം അനുവദിച്ചു മുതിർന്ന അഭിഭാഷകയായ അഞ്ചന പ്രകാശിനെ പ്രതിയായ പവൻകുമാർ ഗുപ്തയെ പ്രതിനിധീകരിച്ച് അമിക്കസ് ക്യൂറിയായി കോടതി നിയമിച്ചു

ബി

വിഷയത്തിൽ ഡൽഹി ഹൈക്കോടതിയാണ് തീരുമാനം എടുക്കേതെന്നും ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് എസ്

ബോബ്ഡെ അധ്യക്ഷനായ ബഞ്ച് നിർദ്ദേശിച്ചു

ഈ ഘട്ടത്തിൽ സാൽട്ട് ലേക്ക് സെക്ടർ അഞ്ച് മുതൽ സാൾട്ട് ലേക്ക് സ്റ്റേഡിയം വരെ ട്രെയിൻ സർവീസ് നടത്തും യാത്രക്കാർക്കുള്ള സർവീസ് നാളെ ആരംഭിക്കും

ആറ് സ്റ്റേഷനുകളാണ് ഉള്ളത് പശ്ചിമ ബംഗാളിലെ വിവിധ റെയിൽവെ പദ്ധതികൾക്കും കേന്ദ്രമന്ത്രി തുടക്കം കുറിക്കും

റേഡിയോയും വൈവിദ്ധ്യവും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണത്തിന്റെ സന്ദേശം ദ്രുതഗതിയിലുള്ള വളർച്ചയും വൈവിദ്ധ്യമാർന്ന പരിണാമങ്ങളും ഉണ്ടായ മാധ്യമ ലോകത്തിൽ റേഡിയോയ്ക്ക് സുപ്രധാന സ്ഥാനമാണ് ഉള്ളതെന്ന് റേഡിയോ ദിന സന്ദേശത്തിൽ ഐക്യരാഷ്ട്ര സഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അഭിപ്രായപ്പെട്ടു ആകാശവാണിയുടെ പ്രചാരം വർദ്ധീപ്പിക്കാൻ കൈക്കൊണ്ട പ്രവർത്തനങ്ങളെ കുറിച്ച് പ്രസാർ ഭൂര്യി ് സി ഇ ഒ ശശിശേഖർ വെമ്പതി വ്യക്തമാക്കി